മൂന്ന് സേനകൾക്കുമായി പ്രതിരോധ മേധാവിയെ നിയമിക്കു മെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾക്കുനേരെ നടത്തുന്ന കടന്നുകയറ്റം ഫെഡറൽ ഘടനയുടെ സത്തക്കെതിരാ ണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മലപ്പുറം കവളപ്പാറയിൽ ഉരുൾപൊട്ടലിൽ കാണാതായ ഒരാളുടെ മൃതദേഹംകൂടി കണ്ടെത്തി

അന്തരിച്ച കെ

സി സി ജനറൽ സെക്രട്ടറി പി രാമകൃ ഷ്ണന്റെ മൃതദേഹം കണ്ണൂർ പയ്യാമ്പലത്ത് സംസ്കരി ച്ചു

രാജ്യത്തെ കര വ്യോമ നാവിക സേനകൾക്കായി പ്രതിരോധ മേധാവിയെ നിയമിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു സേനകൾ തമ്മിലുള്ള ഏകോപനം മെച്ചപ്പെടു ത്താനാണ് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് എന്ന പേരിൽ മേധാവിയെ നിയമിക്കുന്നതെന്ന് അദ്ദേഹം അറിയിച്ചു ഇത് സേനയ്ക്ക് കാര്യക്ഷമമായ നേതൃത്വം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു

കർഗിൽ യുദ്ധത്തിനുശേഷം ഇത്തർത്തിലൊരു ശുപാർശ നിലവിലുണ്ടായിരുന്നുവെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു

മുത്തലാഖ് നിരോധന നിയമം മുസ്തിം സ്ത്രീകളുടെ ശാക്തീകരണത്തിന് സഹായിക്കുമെന്നും നരേന്ദ്രമോദി പറ ഞ്ഞു

ഇതിനായി മൂന്നുരലക്ഷം കോടി രൂപ ചെലവഴിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു

ഇത് വെറുമൊരു ഗവൺമെന്റ് പദ്ധതി മാത്രമല്ല സച്ഛ്ഭാ രത് പോലെ ജനങ്ങളുടെ പദ്ധതിയായിരിക്കുമെന്നും പ്രധാ നമന്ത്രി വിശദീകരിച്ചു

ഇനി അവരുടെ ആഗ്രഹ ങ്ങളും സ്പ്നങ്ങളും പൂർത്തീകരിക്കുകയാണ് ലക്ഷ്യമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ലോക്സഭയിലേക്കും നിയമസഭകളിലേക്കും ഒരേസമയം തെരഞ്ഞെടുപ്പ് നടത്തണമെന്നും ഒരു രാഷ്ട്രം ഒരു തെര ഞ്ഞെടുപ്പ് ചർച്ച ചെയ്യാൻ സമയമായെന്നും അദ്ദേഹം അറി യിച്ചു

ഇത് നേരിടാൻ കേന്ദ്രവും സംസ്ഥാനങ്ങളും ചേർന്ന് പദ്ധതികൾ ആവിഷ്കരിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

അടുത്ത അഞ്ചുവർഷംകൊണ്ട് അഞ്ച് ലക്ഷം കോടി അമേ രിക്കൻ ഡോളർ സാമ്പത്തിക വൃവസ്ഥ കൈവരിക്കാൻ ഇതാ വശ്യമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾക്കുനേരെയുള്ള കട ന്നുകയറ്റം ഭരണഘടനയുടെ ജീവസത്തയായ ഫെഡറൽ ഘടനയുടെ സത്തക്കെതിരാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു

ഈ അവകാശങ്ങൾക്കുനേരെയുള്ള കടന്നുകയറ്റം ഭര ണഘടനാ വിരുദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു

കവളപ്പാറയിൽ ഉരുൾപൊട്ടലിൽ മരിച്ചവ രുടെ മൃതദേഹങ്ങൾ പോസ്റ്റുമോർട്ടം ചെയ്യാൻ മുസ്ലീം പള്ളി യിൽ സൌകര്യമൊരുക്കിയത് മഹത്തായ മാതൃകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മലപ്പുറം വയനാട് ജില്ലകളിലുണ്ടായ പ്രകൃതി ദുരന്തങ്ങൾ അലോസരപ്പെടുത്തുവെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു കോഴിക്കോട് വെസ്റ്റ്ഹിൽ വിക്രം മൈതാനിയിൽ സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങിൽ പതാക ഉയർത്തിയ ശേഷം അഭി വാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി വർഗീയതയും വിഘടന വാദവും തുടച്ചു നീക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു

വിവിധ സേനാവിഭാഗങ്ങൾ പൊലീസ് എൻസിസി സ്കൌട്ട് ഗൈഡ്സ് സ്റ്റുഡന്റ് പൊലീസ് കേഡറ്റുകൾ എന്നിവർ മാർച്ച് പാസ്റ്റ് നടത്തി തുടർന്ന് കലാപരിപാടികളും സംഘടിപ്പിച്ചു കണ്ണൂരിൽ മന്ത്രി ഇ

പ്രളയത്തെ തുടർന്നുള്ള ദുരിതാശ്വാസ് പ്രവർത്തനങ്ങളിലും പുനർനിർമ്മാണത്തിലും എല്ലാവരും ഒറ്റക്കെട്ടായി അണി നിരക്കേണ്ട സാഹചര്യമാണ് നില നിൽക്കുന്നതെന്ന് സ്വാതന്ത്യദിന സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞു അതിനായുള്ള പ്രതിജ്ഞയാണ് നാം എടുക്കേണ്ടത് കെടുതിയിൽ നാം തളർന്നു കൂട നാടിന്റെ ശാക്തീകരണത്തിന് ഒന്നിച്ചു നിൽ ക്കേണ്ട സമയമാണിതെന്നും മന്ത്രി പറഞ്ഞു

അഴിമതിയെ പ്രതിരോധിക്കാൻ നമുക്ക് സാധിക്കണം വികസനത്തിന് ബദൽ മാതൃകയുമായാണ് കേരളം മുന്നോട്ട് പോവുന്നതെന്നും മന്ത്രി പറഞ്ഞു നാടിനെ പ്രതിസന്ധിയിൽനിന്ന് കരകയറ്റാൻ ഓരോരു ത്തരും മുന്നിലുണ്ടാകണമെന്ന് മന്ത്രി ഇ ചന്ദ്രശേഖരൻ കാസർകോട്ട് പറഞ്ഞു

ദുരന്തം അനുഭവിക്കുന്ന സഹോദരങ്ങളെ എങ്ങനെ സഹാ യിക്കാമെന്ന ചിന്ത മനസ്സുനിറയെ ്ഉണ്ടാകണമെന്നും ഇതി നായി നടത്തുന്ന പ്രവർത്തനങ്ങളിൽ വരും ദിവസങ്ങളിൽ വ്യാപൃതരാകരണമെന്നും അദ്ദേഹം പറഞ്ഞു ചടങ്ങിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി എം

എമാരായ കെ കുഞ്ഞിരാമൻ എം രാജഗോപാലൻ എൻ എ നെല്ലിക്കുന്ന് തുടങ്ങി പ്രമുഖർ പങ്കെടുത്തു

കലക്ടറേറ്റ് പരേഡ് മൈതാനിയിൽ മന്ത്രി വി

വിശിഷ്ട സേവനത്തിനുള്ള പുരസ്കാരങ്ങൾ ചട ങ്ങിൽ വിതരണം ചെയ്തു സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി ദക്ഷിണ നാവിക കമാൻഡ് മേധാവി വൈസ് അഡ്മിറൽ എ

കൊച്ചി തുറമുഖ ട്രസ്റ്റിൽ ചെയർ പേഴ്സൺ ഡോ

മന്ത്രിമാരായ കെ

ജലീൽ മലപ്പുറത്തും കെ കെ ശൈലജ വയനാട്ടിലും എ സി മൊയ്തീൻ തൃശൂരും കെ കൃഷ്ൺകുട്ടി പാലക്കാട്ടും ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരി ച്ചു കൊല്പത്ത് കെ രാജുവും പത്തനംതിട്ടയിൽ ജെ മേഴ്സി ക്കുട്ടിയമ്മയും ആലപ്പുഴയിൽ ജി സുധാകരനും കോട്ടയത്ത് പി തിലോത്തമനും ഇടുക്കി യിൽ എം എം മണിയും സ്വാത ന്ത്ര്യദിനാഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി മലപ്പുറം കവളപ്പാറയിൽ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവരിൽ ഒരാളുടെ മൃതദേഹംകൂടി കണ്ടെത്തി ഇതാരുടേതാണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല

ഏറ്റവും കൂടുതൽ പേർ മരിച്ചത് മലപ്പു റത്താണ്

വെള്ളമിറങ്ങിയതിനെത്തുടർന്ന് വിവിധ ജില്ലകളിൽ ഏതാനും ക്യാമ്പുകൾ പിരിച്ചുവിട്ട് ആളുകൾ വ്യീടുകളിലേക്ക് മടങ്ങിത്തുടങ്ങി

വയനാട് മേപ്പാടി പുത്തുമലയിൽ ഉരുൾപൊട്ടലിൽ കാണാ തായവർക്കുവേണ്ടി തിരച്ചിൽ തുടരുന്നു

പ്രത്യേകം പരിശീലനം ലഭിച്ച നായ്ക്കളേയും തിരച്ചിലിനായി ഉപയോഗിക്കുന്നുണ്ട് അറുനൂറിലധികം സന്നദ്ധ പ്രവർത്തകർ സ്ഥലത്തുണ്ട് പ്രളയജ്ലവുമായി സമ്പർക്കമുള്ളവർക്ക് എലിപ്പനി ഉണ്ടാ കാൻ സാധ്യതയുള്ളതിനാൽ ആരോഗ്യവകുപ്പിന്റെ നേതൃ ത്വത്തിൽ മറ്റന്നാൾ മുതൽ ആറ് ശനിയാഴ്ചകളിൽ ഡോക്സി ഡേ ആയി ആചരിക്കുമെന്ന് മന്ത്രി കെ

പോളിയോ വാക്സിൻ ക്യാമ്പയിൻ പോലെ വിപുല മായ കൃാമ്പയിനാണ് ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി തിരുവനന്ത പുരത്ത് പറഞ്ഞു പ്രളയബാധിത ജില്ലകളിലെ ആശുപത്രികൾ റിലീഫ് ക്യാമ്പുകൾ തിരഞ്ഞെടുക്കപ്പെട്ട പൊതുസ്ഥലങ്ങൾ എന്നി വിടങ്ങളിൽ പ്രത്യേകം ഡോക്സി ബൂത്തുകൾ സ്ഥാപിച്ചാണ് ഡോക്സിസൈക്സിൻ ഗുളികകൾ സൌജന്യമായി വിതരണം ചെയ്യുന്നത്

പ്രകൃതി ദുരന്തത്തിൽ തകരാറിലായ നാല് പാലങ്ങളുടെ അറ്റകുറ്റപ്പണികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടത്താനും കലക്ടർ ഉത്തരവിട്ടു പോത്തുണ്ടി കൽപ്പള്ളി വിലങ്ങാട് ഉരുട്ടി പാലങ്ങളുടെ അറ്റകുറ്റപ്പണികൾ പൊതുമരാമത്ത് വകു പ്പിന്റെ ഫണ്ടുപയോഗിച്ച് ഉടൻ പൂർത്തിയാക്കണമെന്ന് കല ക്ടർ നിർദ്ദേശിച്ചു മഴക്കെടുതിയിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി ചുമട്ടുതൊഴിലാളികൾ സജീവമായി രംഗത്തിറങ്ങണമെന്ന് കേരള ഹെഡ് ലോഡ് ആന്റ് ജനറൽ വർക്കിംഗ് ഫെഡറേ ഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ വി രാഘവൻ കണ്ണൂരിൽ അറിയിച്ചു എല്ലാ തൊഴിലാളി വിഭാഗങ്ങൾക്കും സൌജന്യ റേഷൻ അനുവദിക്കണമെന്നും അദ്ദേഹം ആവ ശ്യപ്പെട്ടു അന്തരിച്ച കെ

സി ജനറൽ സെക്രട്ടറി പി

സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ എ ഐ

സി ജനറൽ സെക്രട്ടറിമാരായ ഉമ്മൻചാണ്ടി കെ സി വേണുഗോപാൽ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് പി എസ് ശ്രീധരൻപിള്ള സി

എം ജില്ലാ സെക്രട്ടറി എം വി ജയ രാജൻ തുടങ്ങിയവർ ആദരാഞ്ജലി അർപ്പിച്ചു ഈറോഡ് ജംഗ്ഷനിൽ നോൺ ഇന്റർലോക്കിംഗ് പ്രവൃത്തി നടക്കുന്നതിനാൽ മറ്റന്നാൾ മുതൽ അഞ്ചുദിവസം ആറ് ട്രെയിനുകൾ റദ്ദാക്കുകയും ചിലത് വഴി തിരിച്ചുവിടു കയും ചെയ്യുമെന്ന് റെയിൽവേ അറിയിച്ചു